ഐപിഎലിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും

സേവനത്തിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് എൻഎസ്എസ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

ഞാനല്ല നീയാണ് എന്നതാണ് ഈ പദ്ധതിയുടെ മുദ്രാവാകൃമെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു

രാജ്യം കോവിഡ് പ്രതിസന്ധി നേരിടുന്ന ഈ കാലത്ത് എൻഎസ്എസ് അംഗങ്ങൾ കാഴ്ചവെച്ച നിസ്തുല സേവനം പ്രശംസാർഹമാണെന്ന് കേന്ദ്ര യുവജനകാരൃ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു സന്നദ്ധ സാമൂഹ്യ സേവന രംഗത്തെ മികച്ച സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിലാണ് കേന്ദ്ര യുവജന ക്ഷേമ വകുപ്പ് എല്ലാ വർഷവും നാഷണൽ സർവീസ് സ്കീം അവാർഡ് നൽകുന്നത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റുൻ്റ് വിരാട് കോഹ്ലി അടക്കമുള്ള കായികതാരങ്ങളു മായും കായികക്ഷമതയുമായി ബ്രന്ധ്യപ്പെട്ട് പ്രവർത്തിക്കുന്നവ രുമായാണ് പ്രധാനമന്ത്രി സ്റ്റവദിച്ചത്

ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സംവാദ പരമ്പരയിലായിരുന്നു ഇത് ഒരു വർഷത്തിനുള്ളിൽ ഫിറ്റ് ഇന്ത്യാ പ്രസ്ഥാനം ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഓസ്ട്രേലിയ ജർമ്മനി അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ പല രാജൃങ്ങളും കായികക്ഷമതാ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടത്തിവരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു കാരീരികക്ഷമതയുമായി ബന്ധപ്പെട്ട നല്ല ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ അദ്ദേഹം മാതാപിതാക്കളോട് ആഹ്വാനം ചെയ്തു

കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയിലേക്കൂള്ള് വിമാന സർവീസുകൾ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചി മുതലാണ് സൌദി അറേബൃ നിരോധിച്ചത്

കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കച്ചവടം പുനരാരംഭിക്കുന്നതിന് ഈട് ആവശ്യമില്ലാത്ത വായ്പ നൽകാനാണ് പിഎം സ്വനിധി പദ്ധതി ആരംഭിച്ചത്

ഈ വർഷം നവംബറിൽ നടത്താൻ തീരുമാനിച്ചി രുന്ന മേളയാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവച്ചത്

തിയേറ്ററുകളിലെ പ്രദർശനത്തിന് പുറമെ വെർചലായും മേള നടത്തും

കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേരിൽ രോഗം സ്ഥിരീകരിച്ചത്

രാജ്യത്ത് ആദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രി കോവിഡ് ബാധിച്ച് മരിക്കുന്നത്

രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ നിലവിൽ രണ്ടാം സ്ഥാനത്താണ്

ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലാണ് അന്ത്യം

ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം

കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ കാർഷികോ ൽപ്പദാന വിപണി സമിതിയുടെ കമ്പോളങ്ങൾക്കു പുറത്തും വിൽക്കാനാകു മെന്നും മന്ത്രി പറഞ്ഞു പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലുകൾ രാജ്യത്തെ വിപ്ലവ കരമായ ചുവടുവെപ്പാണെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ശ്രീ തോമർ പറഞ്ഞു കാർഷി കോൽപ്പന്നങ്ങളുടെ താങ്ങുവില ഒരിക്കലും നിയമ ത്തിന്റെ ഭാഗമായിരുന്നില്ല

ലോകാരോഗ്യ സംഘടന യിലെ അംഗരാഷ്ട്രങ്ങളുടെ ആരോഗൃമന്ത്രിമാർ ഐകൃ രാഷ്ട്രസഭാ മേധാവികൾ എന്നിവരെ വെർചൽ യോഗത്തി ലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

എന്നാൽ നിർദിഷ്ട സമയത്തിന് മുമ്പ് തന്നെ ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യക്കു സാധിക്കുമെന്ന് ആരോഗൃമന്ത്രി പറഞ്ഞു

ആണവ ശാസ്ത്രമേഖല യിൽ ഇന്ത്യയെ മുൻ നിരയിൽ എത്തിക്കുന്നതിൽ മുഖ്യപങ്കുവഹിച്ച ഡോക്ടർ ബസുവിന്റ നിര്യാണത്തിൽ ശാസ്ത്ര സമൂഹത്തോ ടൊപ്പം താനും ദുഃഖിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സംസ്ഥാനങ്ങൾക്ക് കോവിഡ് പ്രതിരോധ ന്ട്പടികൾക്കായി ഇതിലൂടെ കൂടു തൽ തുക ചെലവഴിക്കാൻ സാധിക്കുമെന്ന് പ്രഖ്യാപനം നടത്തവെ പ്രധാനമൃന്ത് നരേന്ദ്രമോദി പറഞ്ഞു

രാജ സ്പോർട്സ് സ്കൂളിന്റെ നിലവാരം ഉയർത്തും മികവിന്റെ കേന്ദ്രമാ ക്കാൻ തിരഞ്ഞെടുത്ത രാജ്യത്തെ ആദ്യ എട്ട് സ്കൂളുകളി ലൊന്നാണ് ജി വി രാജ

ശ്രീ മോദിയുമായി ശനിയാഴ്ച നടത്തുന്ന വിർചൽ ഉച്ചകോടിയെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നത് എന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെ അറിയിച്ചു